പ്രതിദിന കോവിഡ് പരിശോധ വീണ്ടും വർധിച്ചു

മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ എട്ട് മരണം

തുടർച്ചയായി മൂന്നാം ദിവസമാണ് ആറു ലക്ഷത്തിലേറെ പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്

രുദ അഹമ്മദാബാദിൽ കോവിഡ് ആശുപത്രിയിലുണ്ടായ തീപിടിത്തത്തിൽ മൂന്നു സ്ത്രീകൾ ഉൾപ്പെടെ എട്ടു പേർ മരിച്ചു പുലർച്ചെ മൂന്നരക്ക് നവരംഗ്പുരയിലെ ശ്രേയ് ആശുപത്രിയിലാണ് അപകടമുണ്ടായത്

ഷോട്ട്സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സംഭവത്തിൽ മുഖ്യമന്ത്രി വിജയ് റുപാണി അന്വേഷണത്തിന് ഉത്തരവിട്ടു

രുക കോവിഡ് പ്രതിരോധ പ്രവർത്തനം പാളിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പഴിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അഴിമതിയുടെ പ്രഭവകേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുകയാണെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷത്തെയും പഴിച്ച് സ്വന്തം പരാജയ മുഖം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട് ഇക്കാര്യം ജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു

രുമ മാർജിൻഫ്രീ ഉൾപ്പെടെ ഹൈപ്പർമാർക്കറ്റുകളിൽ നൂറ് ചതുരശ്രമീറ്ററിന് ആറ് പേർ എന്ന നിലയിൽ മാത്രമേ ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു വളരെ അത്യാവശ്യം ജീവനക്കാരെ മാത്രമേ സ്ഥാപനങ്ങളിൽ നിയോഗിക്കാവൂവെന്നും നിർദേശിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് കാത്തുനിൽക്കാൻ കടകൾക്കു മുന്നിൽ സാമൂഹിക അകലം പാലിച്ച് വൃത്തം വരയ്ക്കണം ഇത്തരം കടകളിൽ ഉപഭോക്താവിന് ചെലവഴിക്കാൻ പരമാവധി സമയം നിജപ്പെടുത്തണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് ദ്രദ തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമ പഞ്ചായത്തിലെ മുണ്ടുകോണം പൊന്നെടുത്താക്കുഴി പെരിങ്ങമല ഗ്രാമ പഞ്ചായത്തിലെ ഇടിഞ്ഞാർ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ മലയമഠം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഓഫീസ് വാർഡുകൾ കണ്ടെയിൻമെന്റ് സോണായി ജില്ലാ കലക്ടർ ഡോ

ഈ വാർഡുകളോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്തണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു ഈ പ്രദേശങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരീക്ഷകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നടത്താൻ പാടില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

രെര കോഴിക്കോട് ജില്ലയിൽ പൂർണമായും കണ്ടെയ്മെന്റ് സോണുകളായിരുന്ന ഗ്രാമപഞ്ചായത്തുകളെ ഭാഗിക കണ്ടെയ്മെന്റ് സോണുകളാക്കി മാറ്റി വാണിമേൽ കോടഞ്ചേരി നാദാപുരം എടച്ചേരി തിരുവള്ളൂർ പുറമേരി അഴിയൂർ ഗ്രാമപഞ്ചായത്തുകളെയാണ് ഭാഗികമായി കണ്ടെയ്മെന്റ് സോണുകളാക്കി മാറ്റിയത്

രുമ റിസർവ് ബാങ്ക് ദ്വൈമാസ വായ്പാ നയം പ്രഖ്യാപിച്ചു

നിയന്ത്രണവിധേയമായിരിക്കുമെന്ന് ആർ ബി

ലോക്ഡൌണിനു ശേഷം മാന്ദ്യത്തിലായ സമ്പദ് ഘടന തിരിച്ചുകയറാൻ തുടങ്ങിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രുമ ഓഹരി വിപണിയിൽ നേട്ടത്തോടെ തുടക്കം

ആഗോള വിപണിയിൽ സ്വർണ്ണ വില കുത്തനെ ഉയർന്നതാണ് ആഭ്യന്തര വിപണിയിലും വില കൂടാൻ കാരണം

രുമ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം വിതച്ച് ശക്തമായ കാറ്റും മഴയും തുടരുന്നു നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്

ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്ടും വയനാട്ടിലും ഇന്ന് റെഡ് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഞായറാഴ്ച വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു രുദ കേരളത്തിൽ ഉൾപ്പെടെ പശ്ചിമഘട്ട ഡാമുകളിൽ അതിജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ മുന്നറിയിപ്പ് നൽകി ഇടുക്കി ഇടമലയാർ ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടുന്നതായും ജലകമ്മീഷൻ അറിയിച്ചു രുമ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴ തീര മലയോര മേഖലകളിൽ നാശ നഷ്ടം വിതച്ചു

സുരേഷ്ബാബു

എൽ എയും സി

നാരായണൻ അന്തരിച്ചു

രോഗബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ വൈക്കത്താണ് അന്തരിച്ചത്

തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം വൈക്കം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു സംസ്കാരം വൈകിട്ട് അഞ്ചിന് വൈക്കം നഗരസഭാ ശ്മശാനത്തിൽ